ഐ

ഹാക്കത്തോൺ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും

ഉത്തരേന്തൃയിൽ കനത്ത മഴ തുടരുന്നു രാജൃത്ത് ഒരാഴ്ച കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം

മദ്രാസ് ഐ ഐ

സിംഗപ്പൂർ ഇന്ത്യ ഹാക്കത്തോൺ മൽസര വിജയികൾക്ക് പ്രധാനമന്ത്രി മദ്രാസ് ഐ

നല്ല ആരോഗ്യം നല്ല ജീവിത നിലവാരം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സംശുദ്ധ ഊർജ്ജം എന്നീ വിഷയ്ക്കുങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഹാക്കത്തോൺ സംഘടിപ്പിച്ചത്

വിദ്യാർത്തികൾ വിവിധ ആശയങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുന്ന ഹാക്കത്തോണ്നിന്റെ രണ്ടാം പതിപ്പാണ് മദ്രാസ് ഐ ഐ ടി യിൽ സംഘടിപ്പിച്ചത്

യുനിസെഫ് ഇന്ത്യ സാനിറ്റേഷൻ ചുമതലയുടെ നിക്കോളാസ് ഒസ്ബർട്ട് വാർത്താ ഏജൻസിയോട് സംസാരിക്കവേയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

് ഗാസിയാബാദ് മുതൽ ഹാപുർ വരെയുള്ള പാതയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്

ഡൽഹി മീററ്റ് പാത നാല് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുന്നത്

ഇന്നലെ ചെന്നൈയിൽ സ്വകാര്യ സർവകലാശാലയുടെ പ്പിപ്രാടീയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്തി

സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ റേഷൻ കടകൾ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ആധാർ ബന്ധിപ്പിക്കാൻ സൌകര്യമൊരുക്കിയിരുന്നു കാർഡിലെ എല്ലാ അംഗങ്ങളും ആധാർ ബന്ധിപ്പിക്കണം റേഷൻ കടയിലെത്തി വിരലടയാളം നൽകിയാലും ആധാർ ബന്ധിപ്പിക്കാം

ഡി എഫ് ദിവസങ്ങൾക്കു മുമ്പെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടു

ഡി എഫിന് പിന്നാലെ എൻ

സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നവസാനിക്കും

ജെ പി കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രസിഡന്റ് അമിത് ഷാ മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം ഒക്ടോബർ നാല് ആണ്

് രീണ്ട് വനിതകളും സംവരണ പട്ടികയിലുണ്ട്

ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ സമൂഹവും വിവിധ സംഘടനകളുമാണ് പരിപാടി നടത്തുന്നത്

എ

രാജ്യത്ത് കാലവർഷത്തിന് ഇന്നത്തോടെ സമാപനമാകുമെങ്കിലും മഴയുടെ പിൻമാറ്റത്തിന് ഒരാഴ്ചക്കാലം കൂടി എടുക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം ഡയറക്ടർ മൃത്യുഞ്ജയ് മഹാപത്ര അറിയിച്ചു

കനത്ത മഴയിൽ യു

ബീഹാറിലെ പല ജില്ലകളും വെള്ളത്തിനടിയിലാണ്

പലയിടത്തും റെയിൽഗതാഗതം നിർത്തിവച്ചു ബിഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബംഗാളിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച അതിശക്തമായ മഴയാണ് ലഭിച്ചത് രാജസ്ഥാൻ ബിഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇപ്പോഴും മൺസൂൺ സജീവമാണ് ഗുജറാത്തിലും രാജസ്ഥാനിലും ശനിയാഴ്ച വരെ മഴ തുടരും മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം ഇത്ര ദീർഘിക്കുന്നത് ആദ്യമാണ് പഞ്ചാബ് മധ്യൂപ്പദേശ് മഹാരാഷ്ട്ര ഒഡീഷ ഗുജറാത്ത് മിസോറാം ത്രിപുര ക്ഷേര്ള്കില്ക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഇത്തവണ ശരാശരിയേക്കാൾ മഴ ലഭിച്ചിട്ടുണ്ട്ട് രാജ്യത്ത് ഇത്തവണ ഒൻപത് ശതമാനം കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ടെന്ന് ക്ഷേന്ദ്ര് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണ്ടി

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എ

സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയും പ്രളയക്കെടുതി രൂക്ഷമായ യു

മിന്നലുള്ള സമയങ്ങളിൽ തുറസ്സായ സ്ഥലത്തു നിൽക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണമെന്നും വൈദ്യുതിബന്ധം വിച്ഛേദിക്കണമെന്നും അതോറിറ്റി അറിയിച്ചു

കെ യിലെ മാർലോയിൽ നടന്ന വനിത ഹോക്കി മൽസരത്തിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള മൽസരം സമനിലയിൽ കലാശിച്ചു

ഇന്ത്യയുടെ രണ്ടാം മൽസരം നാളെയാണ്

ഇന്ത്യയുടെ തുടർച്ചയായ മൂന്നാം വിജയമാണിത്

രമൺദീപ് സിങ്ങ് ആകാശ് ദീപ് സിങ്ങ് എസ്

സുനിൽ എന്നിവരും ഗോൾ നേടി ലോക രണ്ടാം നമ്പർ താരം ബെൽജിയ്ക്ക്വുമായി നാളെ ഇന്ത്യ ഏറ്റുമുട്ടും

ഇന്ത്യൻ താരം സിറിൽ വർമയെയാണ് പരാജയപ്പെടുത്തിയത് വനിതാ വിഭാഗം മത്സരത്തിൽ ഇന്ത്യയുടെ അശ്വിനി പൊന്നപ്പ സിക്കി റെഡ്ഡി സഖ്യം പരാജയപ്പെട്ടു ജാപ്പനീസ് സഖ്യത്തോടാണ് ഇവർ പരാജയപ്പെട്ടത് പുരുഷ വിഭാഗം ഡബിൾസ് വിഭാഗവും ജാപ്പനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു

എല്ലാത്തരം ഉള്ളി ഇനങ്ങൾക്കും കയറ്റുമതി ഒച്ച്ചുന്നതിൽ നിരോധനമുണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് രാജ്യത്ത് ഉള്ളി വില വർദ്ധിച്ചു പശ്ചാത്തലത്തിലാണിത് കഴിഞ്ഞ ആഴ്ച കർഷകരുമായും കച്ചുവടക്ക്ട്രുമായും ചർച്ച നടത്താൻ ജോയിന്റ് സെക്രട്ടറി തലത്തിലെ രണ്ട് ഉദ്യോഗസ്ഥര് ടങ്ങുന്ന സംഘത്തെ കേന്ദ്രം നിയോഗിച്ചിരുന്നു ഉള്ളി ലഭ്യതയെ ക്കുറിച്ച് അറിയാനും കൂടുതൽ ഉള്ളി എത്തിക്കാനുമായിരുന്നു ചർച്ച സംസ്ഥാനങ്ങളുടെ ആവശ്യാനുസരണം കേന്ദ്ര ഗവൺമെന്റ് ഉള്ളി എത്തിക്കുന്നുണ്ട്